ഡി എഫ്

മുന്നേറ്റം

നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തു്കളിലും എൽ

എഫിന് മികച്ച വിജയ്ക്ക് മു്നിസിപ്പാലിറ്റികളിൽ നേട്ടമുണ്ടാക്കി യു ഡി

ഫ്ലില് മെച്ചപ്പെടുത്തി എൻ ഡി

ഡി

പ്രക്ഷോഭം നടത്തുന്ന കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ സമിതി രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് സുപ്രീം കോടതി

കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം നേടാനായത് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നേറ്റം നടത്തിയ എൻഡിഎ പന്തളം പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി

ജെ

ഡി

ജെ പി സഖ്യവുമാണ് ഭരണം നേടിയത്

ഡി

നേരത്തെ ഏഴ് വീതം ജില്ലാ പഞ്ചായത്തുകളിലാണ് ഇരുമുന്നണികളും അധികാരത്തിലെത്തി യിരുന്നത്

ഡി എഫ്

ഡി

ഡി

ഡി

ഡി

ഡി എഫ് നിലനിർത്തി

കൊല്ലം കോഴിക്കോട് എന്നീ കോർപറേഷനുകളിൽ ഡി എഫും കണ്ണൂർ കോർപറേഷനിൽ യു

ഡി എഫ് മുന്നേറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഡി എഫിന്റെ ജനകീയ അട്ടിത്തറ ശക്തമായതായും യു ഡി

അപവാദങ്ങൾ തള്ളിക്കളഞ്ഞ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ജനക്ഷേമ പദ്ധതികൾ തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും വ്യക്തമാക്കി

ജെ പിയുടെ അവകാശ വാദങ്ങൾ തകർന്നടിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജെ

എഫിലുണ്ടായ പാളിച്ചകൾ പരിശോധിക്കുമെന്നും ആദ്ദേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ജെ പിയെ തോൽപ്പിക്കാൻ യു

എഫും എൽ ഡീഎഫും ക്രോസ് വോട്ട് ചെയ്തതായി ബി ജെ

ഇരുമുന്നണികളും പരസ്യമായി വോട്ട് കച്ചവടം നടത്തിയതു കൊണ്ടാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ഭരണത്തിൽ വരാതിരുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

എഫുമായി എന്ത് ധാരണയാണ് ഉണ്ടാക്കിയതെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കണമെന്നും ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു

ഡി എഫിനുണ്ടായ ചരിത്ര വിജയം മുന്നണിയുടെ തത്താധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനും സംസ്ഥാന ഭരണത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ജനങ്ങളെ ഒപ്പം നിർത്തി നാട്ടിൽ സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കിയ പിണറായി സർക്കാരിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണിതെന്ന് പാർട്ടി പ്രസ്താവനയിൽ വൃക്തമാക്കി

പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് കെട്ടിപ്പൊക്കിയ നുണപ്രചർണങ്ങ്ളെ അതിജീവിച്ചാണ് ഇടതു ജനാധിപത്യമുന്നണി ഇങ്കുപ്പ് വിജയം നേടിയതെന്നും വാർത്താ സമ്മേളത്തിൽ കാനം പറഞ്ഞു

വിശദാംശങ്ങളുമായി സുവർണ

വൈദ്യുത മേഖലയിൽ പൊതുതാല്പര്യമുള്ള വിഷയങ്ങളിലെ വിവര കൈമാറ്റം ലക്ഷ്യമിട്ട് ഇന്തൃ അമേരിക്ക ധാരണാപത്രത്തിനും കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി സ്പെക്രം ലേലം നടത്താനുള്ള കേന്ദ്ര വാർത്ത വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം

പ്രതിനിധികൾക്കൊപ്പം ഭാരതീയ കിസാൻ യൂണിയൻ കർഷക സംഘടന പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്നതാവും സമിതിയെന്നു ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെ ജസ്റ്റിസുമാരായ എസ്

ബൊപ്പണ്ണ വി

കർഷക നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരെ നീക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു പരമോന്നത കോടതി ഇത് സംബന്ധിച്ച് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി പഞ്ചാബ് സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചതായി കോടതി അറിയിച്ചു കേസ് നാളെ വീണ്ടും പരിഗണിയ്ക്കും

കർഷകർ അഭിമുഖീകരിക്കുന്ന് എല്ലാ പ്രശ്നങ്ങളും സർക്കാർ ഗൌരവത്തോടെയാണ് ക്ടിഞ്ചുന്നത് കർഷക സംഘടനകൾ ദീർഘകാലമായി ആവശ്യപ്പെട്ടതാണ് നിയമ പരിഷ്കരണത്തിലൂടെ സർക്കാർ കൊണ്ടുവന്നത് വർഷങ്ങളായി പ്രതിപക്ഷ കക്ഷികളും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതായി ശ്രീ ജാവ്ദേക്കർ ടിറ്ററിൽ കുറിച്ചു

ഷാർജ ലണ്ടൻ നെയ്റോബി എന്നിവിടങ്ങളിൽ നിന്നാണ് രണ്ടാം ഘട്ടത്തിൽ കൂടുതലായി ആളുകൾ നാട്ടിലെത്തിയത്

സാമ്പത്തിക വിദഗ്ധർ പങ്കെടുക്കുന്ന യോഗത്തിൽ ധനകാര്യ സെക്രട്ടറി ഡോ

പാണ്ഡെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ വി സുബ്രഹ്മണ്യൻ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

വാക്സിനേഷൻ യജ്ഞവുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദേശങ്ങളിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രലയം അറിയിച്ചു